ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്ക്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു ഏറ്റു വാങ്ങും

സുപ്രീംകോടതി ചീഫ് ജിസ്റ്റിസ് ആയി ജസ്റ്റിസ് രജ്ഞൻ ഗോഗോയ് ഇന്ന് സ്മാനമേൽക്കും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് ഗോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ രാജ്കോട്ടിൽ തുടക്കമാകും

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം

കാലാവസ്ഥാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മികച്ച സംഭാവന നൽകുന്നവർക്ക് ഐകൃരാഷ്ട്ര സംഘടന നൽകുന്ന ബഹുമതിയാണ് ചാമ്പൃൻസ് ഓഫ് ദി എർത്ത് എല്ലാ വർഷവും നൽകിവരുന്ന പുരസ്കാരത്തിനായി വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വകാര്യമേഖല പൊതുസമൂഹം എന്നീ വിഭാഗങ്ങളിൽ നിന്നുമാണ് സമ്മാനാർഹരെ തെരഞ്ഞെടുക്കുക ഇതിൽ രാഷ്ട്രീയ നേതൃത്വ വിഭാഗത്തിൽ ന്നിന്നുമാണ് ശ്രീ മോദി തെരഞ്ഞെടുക്കപ്പെട്ടത്

ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ശ്രീ

എം റെയിൻബോ ചാനലുകളിലും പരിപാടി കേൾക്കാവുന്നതാണ്

ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിനാകെ കാലാവസ്ഥ നീതി ഉറപ്പാക്കാനുള്ള സംവിധാനമായി അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ഊർജ്ജ അവശ്യകത ഉറപ്പാക്കാൻ എണ്ണ ഉത്പാദക രാഷ്ട്രങ്ങളുടെ സഖ്യമായ ഒപെക് വഹിക്കുന്നതിന് തുല്യമായ പങ്ക് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് നിർവഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ന്യൂഡൽഹിയിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ച്ചയിൽ കാലാവസ്ഥാവൃതിയാനം ഡിജിറ്റൽ സ്ഹക്രണം സുരക്ഷാ നവീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണയായി

രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് ഗോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വിരമിച്ച ഒഴിവിലാണ് നിയമനം

പതിമൂന്ന് മാസം വരെ അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാം

ഗുവാഹത്തി ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ആരംഭിച്ചത്

രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടുള്ള ആദരവായി ഈ മാറ്റത്തെ കരുതണമെന്നും സർവകലാശാലകൾക്കായുള്ള വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു പുതിയ വേഷ രീതികൾ നിർദ്ദേശിക്കുന്നതിനായി സർവകലാശാലകൾ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകാവുന്നതാണ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും മാതൃകകൾ നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഖാദി ഉല്പന്നങ്ങളുടെ വില്പനയിൽ നാല് ഇരട്ടി വർദ്ധനവ് ഉണ്ടായതായും ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാന്റായതായും മന്ത്രി അറിയിച്ചു

പിടിച്ചെടുത്തവയിൽ രണ്ട് എ

ദേശീയ തെരഞ്ഞെടുപ്പ് നടന്ന് അഞ്ചുമാസത്തിനു ശേഷമാണ് ഇറാഖിന് പുതിയ പ്രസിഡന്റിനെ ലഭിക്കുന്നത്

പ്രധാനമന്ത്രിയായി ഷിയ നേതാവ് ഏദൽ അബ്ദുൾ മഹ്ദിയെ ശ്രീ സാലിഹ് നിർദ്ദേഹിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി കാരോൾ

ടെസ്റ്റ് റാംങ്കിംഗിലെ ഒന്നാമനെന്ന പദവി നിലനിർത്താൻ ഇന്ത്യയ്ക്ക് പരമ്പരയിലെ രണ്ടു മത്സരങ്ങളും ജയിച്ചേ മതിയാവൂ വിശ്രമത്തിനുശേഷം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തിരിച്ചെത്തുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ കരുത്തുകൂടും ഇന്ത്യൻ ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിനായുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയെ കാണുന്നത്

ബാറ്റിംഗിൽ മായംഗ് അഗർവാൾ പൃഥ്വി ഷാ ഹനുമാ വിഹാരി ഋഷഭ് പന്ദ് എന്നിവരും ബൌളിങിൽ ഷാർദുൽ ഠാക്കൂർ മുഹമ്മദ് സിറാജ് എന്നിവരും പുതുമുഖങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ടീമിലുണ്ടായിരുന്ന ശിഖർ ധവാനെയും മുരളി വിജയെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പേസ് ബൌളർമാരായ ജസ്പ്രീത് ബുമ്രയ്ക്കും ഭുവനേശ്വർ കുമാറിനും ഇന്ത്യ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗാന്ധിജയന്തി ദിനത്തിൽ ന്യൂഡിൽഹിയിൽ നടന്ന ചടങ്ങിൽ മത്സരാർത്ഥികൾക്ക് അദ്ദേഹം ആശംസകൾ നേരുകയും അടുത്ത വർഷം നടക്കുന്ന വേൾഡ് സ്കിൽസ് മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാനാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ലേ്ക്കത്തിനു മുൻപിൽ വൈദഗ്ധ്യമുള്ളവരുടെ തലസ്ഥാനമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമ്മോദിയുടെ സ്പ്നമെന്നും ഈ മത്സരം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വേദിയാണെന്നും ശ്രീ

മത്സരങ്ങിലെ അംഗപരിമിതരുടെ സാന്നിധ്യം പ്രശംസനീയമാണെന്നും മന്ത്രി പറഞ്ഞു

മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റീസ് കെ

ഉഷ്ട് ഉദ്ഘാടനം നിർവ്വഹിച്ചു

സംസ്ക്കാരം ഇന്ന് തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവനിലും പൊതുദർശനത്തിനുവച്ച ഭൌതിക ശരീരത്തിൽ കലാരംഗത്തെ പ്രമുഖരെത്തി അന്തിമോപചാരം അർപ്പിച്ചു

കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന ഞാങ്കടവ് ശുദ്ധജല വിതരണ വിപൂലികരണ പദ്ധതിയുടെ നിർമാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയാനന്തര പുനർനിർമാണ പ്രക്രിയയുടെ ഭാഗമായാണ് ഗാന്ധിജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്

ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് കേരളത്തെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു